അറസ്റ്റുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു ജാഗ്രത പാലിക്ക ണമെന്ന് ദുരന്തനിവാരണ അതോറിറ്റി ആസ്പിരേഷനൽ ഡിസ്ട്രിക്ട് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗ മായി നിതിആയോഗ് സംഘം ഇന്ന് വയനാട്ടിലെത്തും ജില്ല യിലെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ സംഘം ഗ്രാമങ്ങൾ സന്ദർശിക്കും

ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇതുസംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുന്നത് കോടതി ഉത്തരവിലെ ആശയക്കുഴപ്പം കാരണം റെയിൽവെയിലും മറ്റ് വകുപ്പുകളിലും നിരവധി സ്ഥാനക്കയറ്റങ്ങൾ തീരുമാനമാകാതെ കിടക്കുകയാണെന്ന് കേന്ദ്രഗവൺമെന്റ് കോട തിയെ അറിയിച്ചു ഏഴംഗ ഭരണഘടനാബെഞ്ച് കേസിൽ ഉടൻ വാദം കേൾക്കണമെന്നും അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ടു കുമ്പസാര രഹസ്യം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഓർത്തഡോക്സ് വൈദികർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി അന്വേ ഷണ ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റും മറ്റുനടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി വൃക്തമാക്കി ഡൽഹി ഭദ്രാസനത്തിലെ ഫാദർ ജെയ്സ് കെ ജോർജ് ഫാദർ സോണി വർഗീസ് ഫാദർ ജോബ് മാത്യു എന്നിവരുടെ ഹർജികളാണ് ഹൈക്കാടതി തളളി യത് വൈദികർക്ക് ജാമ്യം അനുവദിക്കുന്നതിന് പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തു പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അതിനാൽ ജാമ്യം അനുവദി ക്കരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ വൈദി കരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും വൈദികർ കീഴടങ്ങിയേക്കു മെന്ന് റിപ്പോർട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മറ്റൊരു വൈദികൻ എബ്രഹാം വർഗീസ് ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണയിൽ വാദം കേൾക്കാൻ തൃശൂരിലെ വനിതാ ജഡ്ജിയെ പരിഗണിക്ക ണമെന്നാവശ്യ പ്പെട്ട് നടി നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും കേസിലെ മുഴുവൻ രേഖകളും വേണമെന്ന ദിലീപിന്റെ ഹർജി ഇന്ന് വിചാരണക്കോടതി പരിഗണിക്കാ നിരിക്കെയാണ് ഹർജി ഹൈക്കോടതി പരിഗണനയ്ക്കെടുക്കുന്നത് കെവിൻ വധക്കേസിൽ നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോയുടെ ശബ്ദ സാമ്പിൾ എടുക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും പ്രതി പൊലീസുകാരു മായി ഫോണിൽ സംസാരിച്ചതിന്റെ ആധികാരികത തെളിയിക്കാ നാണ് അന്വേഷണസംഘം കോടതിയെ സമീപിച്ചത് സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു പലയിടങ്ങളിലും വൻ നാശനഷ്ടമുണ്ടായി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തി നടിയിലായി അടുത്ത ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് മലയോര മേഖ ലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

മണ്ണാർക്കാട് അട്ടപ്പാടി ചുരം റോഡിൽ പത്താം വളവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു മണ്ണ് നീക്കം ചെയ്യാൻ നടപടി ആരംഭിച്ചു നെല്ലിയാമ്പതി അയിലൂരിൽ കൃഷിനാശമുണ്ടാ യതായി റിപ്പോർട്ടുണ്ട് കോഴിക്കോട്ടും മലപ്പുറത്തും കനത്ത മഴയാണ് പെയ്യുന്നത് കനത്ത മഴയെ തുടർന്ന് മാനന്തവാടി പാൽചുരം കൊട്ടിയൂർ റോഡിൽ വിള്ളലുണ്ടായി റോഡ് ഇടിയാൻ സാധ്യതയുള്ളതിനാൽ ഇതുവഴി യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദേശിച്ചു ചുര ത്തിന്റെ രണ്ടാം വളവിലാണ് വിള്ളൽ കണ്ടെത്തിയത് വയനാ ട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന പ്രധാന പാതയിലൊന്നാണ് പാൽച്ചുരം വാഹനങ്ങൾ പാൽച്ചുരം ഒഴിവാക്കി പേര്യ വഴി പോക ണമെന്നാണ് നിർദേശം കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു മിക്ക പുഴകളും കരകവി ഞ്ഞൊഴുകുകയാണ് ബാവലി ഇരിട്ടി പുഴകളിൽ നിന്ന് വെള്ളം സമീപപ്രദേശങ്ങളിലേക്ക് കയറി മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റു മുണ്ട് ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്നു കഴിഞ്ഞ മൂന്നുദിവസമായി ഇടവേളയില്ലാതെ പെയ്യുന്ന മഴയിൽ ജനജീവിതം അക്ഷരാർഥത്തിൻ സ് തംഭിച്ചു

റോഡുകളിലെ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ജനങ്ങളുടെ യാത്രാ ദുരിതം വർധിപ്പിച്ചു എന്നാൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മഴ ഇതേനിലയിൽ ശക്തമായി തുടർന്നാൽ കല്ലാർകുട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾകൂടി ഉയർത്തേണ്ടിവരുമെന്ന് അധികൃതർ പറഞ്ഞു താഴ് വാരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു തിരുവനന്തപുരം കഠിനംകുളം പുതുക്കുറിച്ചിൽ ശക്തമായ തിര യിൽപ്പെട്ട് ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു

ബോട്ടിലുണ്ടായിരുന്ന മറ്റു നാലുപേർ പരിക്കുകളില്ലാതെ രക്ഷ പ്പെട്ടു ആസ്പിരേഷനൽ ഡിസ്ട്രിക്ട് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗ മായി നിതിആയോഗ് സംഘം ഇന്ന് വയനാട്ടിലെത്തും നിതി ആയോഗ് സീനിയർ കൺസൽട്ടന്റ് ഡോ കെ കാമരാജു നേതൃത്വം നൽകുന്ന സംഘം ഉച്ചകഴിഞ്ഞ് കല്പറ്റയിൽ യോഗത്തിൽ പങ്കെ ടുക്കും

ജില്ലയിലെ പിന്നാക്കാ വസ്ഥ പഠിക്കാൻ സംഘം ഗ്രാമങ്ങളിൽ സന്ദർശനം നടത്തും രണ്ടു ദിവസത്തെ സന്ദർശന പരിപാടിയിൽ സംഘത്തോടൊപ്പം വിവിധ വകുപ്പുമേധാവികളും പങ്കെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ലോകകപ്പ് ഫുട്ബോളിന്റെ രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് ഇന്ന് ക്രൊയേഷ്യയെ നേരിടും

എന്നാൽ യൂറോപ്പിൽ ലാറ്റിനമേരിക്കൻ മനോഹാരിത കൂടി ഉൾക്കൊണ്ട് പന്ത് തട്ടുന്ന ക്രൊയേഷ്യ ഉയർത്തുന്ന വെല്ലു വിളി അനായാസം മറികടക്കാൻ ഇംഗ്ലണ്ടിനാവുമോ എന്നാണ് ഫുട്ബോൾ പ്രേമികൾ ഉറ്റുനോക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ കളികളും ജയിച്ച ഒന്നാമതായ ക്രൊയേഷ്യ നോക്കൌട്ട് റൌണ്ടിൽ ഡെന്മാർക്കിനെയും റഷ്യയെയും കീഴടക്കിയാണ് സെമിയിലെത്തി യത്

ഇന്നലെ ആദ്യ സെമിയിൽ ബെൽജിയത്തെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ഫ്രാൻസ് ഫൈനലിലെത്തിയത് സംസ്ഥാനത്തെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ ഒന്നരലക്ഷ ത്തോളം വിദ്യാർത്ഥികൾ ഈ വർഷം പ്രവേശനം നേടിയത് പൊതുവിദ്യാലയങ്ങളോട് ജനങ്ങൾക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ വന്ന വലിയമാറ്റമാണെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കേരളത്തിന് അഭിമാനിക്കാവുന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാ സരംഗത്ത് മുൻപന്തിയിലാണെങ്കിലും നിലവാരത്തിന്റെ കാര്യ ത്തിൽ ഒന്നാംസ്ഥാനത്തല്ല ഇത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതെന്നും ലോകത്തിലെ ഏത് വിദ്യാലയത്തോടും കിടപിടിക്കാവുന്ന രീതിയിൽ നമ്മുടെ വിദ്യാലയങ്ങൾ മാറുകയാണെന്നും മന്ത്രി വടകരയിൽ പറഞ്ഞു അമേരിക്കൻ പര്യടനത്തിന് പോയ മുഖ്യമന്ത്രി പിണറായി വി ജയൻ മുഖ്യമന്ത്രിയുടെ ചുമതലയോ തന്റെ കീഴിലെ വകുപ്പുക ളുടെ ഭരണചുമതലയോ മറ്റൊരു മന്ത്രിക്കും കൈമാറാതിരുന്നത് ഭരണസ്തംഭനത്തിന് കാരണമായതായി കോൺഗ്രസ് നിയമസഭാ കക്ഷി ഉപനേതാവ് കെ

ജോസഫ് എം

പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ ജനവാസമേഖലകളിൽ രൂക്ഷമായ കാട്ടാന ശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ആനകൾ പകൽസമയങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് വ്യാപകമായി നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എം

ജെ

ആനശല്യത്തിന് പരിഹാരം കാണാൻ അടുത്ത ആഴ്ച വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച വിളിക്കുമെന്ന് സ്ഥലം എം

എ യും ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനുമായ വി

ഇതേ തുടർന്ന് സി

എം ഇന്ന് മുതൽ ആരംഭിക്കാ നിരുന്ന വനം ഓഫീസ് ഉപരോധം മാറ്റിവച്ചു

രാജാപ്പാറ മെട്ട് ജംഗിൾപാലസ് റിസോർട്ട് ജീവനക്കാരൻ തമിഴ്നാട് സ്വദേശി കുമാറാണ് മരിച്ചത്

പൊലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു വളാഞ്ചേരി വെട്ടിച്ചിറയിൽ ദേശീയപാതയിൽ പരസ്യബോർഡ് സ്ഥാപിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് ഒരാൾ മരിച്ചു ആല പ്പുഴ മാന്നാർ സ്വദേശി മാങ്ങാട്ട് അനിൽകുമാറാണ് മരിച്ചത് സ്വകാര്യ ബസ്സുകൾ വൻതോതിൽ വാടകയ്ക്കെടുത്ത് ഓടി ക്കുന്ന പദ്ധതി കെ

സി പരിഗണിക്കുന്നതായി എം

പദ്ധതിയ്ക്ക് അനുമതി കിട്ടി യാൽ വരുമാനത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു

ഈറോഡിൽ നിന്ന് നീലേശ്വരം ഭാഗത്തേക്ക് പോകുകയാ യിരുന്ന ട്രെയിനിന്റെ അവസാനത്തെ നാല് ബോഗികളാണ് രാവിലെ എട്ടുമണിയോടെ പാളം തെറ്റിയത് ദീർഘദൂര ട്രെയിനു കൾ വന്നുപോകുന്ന അഞ്ചാം നമ്പർ പ്ലാറ്റ് ഫോമിലായിരുന്നു അപ കടം കഞ്ചിക്കോട്ട് പ്രഖ്യാപിച്ച കോച്ച് ഫാക്ടറി നേടിയെടുക്കുമെ ന്ന് എൽഡിഎഫ് കൺവീനർ എ

കോ ച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് എൽ ഡിഎഫ് നടത്തിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരു ന്നു അദ്ദേഹം വാട്സ് ആപ്പ് ഫെയ്സ് ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമ ങ്ങളിൽകൂടി വർഗീയവിദ്വേഷം വളർത്തുന്നതും അനാവശ്യവും സത്യവിരുദ്ധവുമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കാസർക്കോട് ജില്ലാ പൊലീസ് മേധാവി ഡോക്ടർ എ

ഇത്തരം പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്ത പൊലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശുചീകരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാത്തവർക്കെതിരെ ദുരന്തനിവാരണ ചട്ടമനുസരിച്ച് കർശന നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് ജില്ലാദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു

അട്ടപ്പാടി വനത്തിൽ മൂന്നുകോടിയിലധികം രൂപ വില വരുന്ന കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചു പുതൂർ കള്ളാട് വന മേഖലയിലെ പത്തേക്കർ സ്ഥലത്ത് വൻകഞ്ചാവ് തോട്ടമാണ് പൊലീസ് കണ്ടെത്തി നശിപ്പിച്ചത്